വരുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ

ബാപ്പുവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച് രാജൃത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വൈവിധ്യമാർന്ന ആചരണ പരിപാടികൾ നടക്കും എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ആപ്തവാകൃവുമായി ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നങ്ങൾ സഹന സമരപാതയിലൂടെ യാഥാർത്ഥൃത്തിലെത്തിച്ച രാഷ്ട്രപിതാവിന് രാജൃം ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ് മഹാത്മാ ഗാന്ധിയോടുള്ള ആദരസൂചകമായി ലോകം ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആച്ച്രിക്കുന്നു

കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യും അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കാൻ ശ്ര്ദ്ധിച്ച ബാപ്പുവിന്റെ സംഭാവനകൾ ലോകം ഒരിക്കൽ കൂടി സ്മരീക്കുകയാണ്

മനുഷ്യരാശിക്ക് ഉള്ള പ്രചോദനത്തിന്റെ സ്രോതസ് എന്ന നിലയിൽ എല്ലാ വർഷവും ഒക്ടോബർ രണ്ടിന് ഇന്ത്യയിലുള്ള ജനങ്ങൾ മാത്രമല്ല ലോകം മുഴുവൻ മഹാത്മാഗാന്ധിയെ സ്മരിക്കുന്നതായി ഗാന്ധിജയന്തി സന്ദേശത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ സത്യത്തിലും അഹിംസയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ സന്ദേശം സമൂഹത്തിൽ തുല്യതയും ഐക്യവും കൊണ്ടുവരാനും അതുവഴി ലോകക്ഷേമത്തിലേക്കും വഴിതെളിച്ചതായും ശ്രീ രാംനാഥ് കോവിന്ദ് പറഞ്ഞു

മഹാത്മാഗാന്ധിയുടെ ജീവിതത്തേയും പാരമ്പര്യ മൂല്യങ്ങളേയും ആദരിക്കുന്നതിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള സാമൂഹിക രാഷ്ട്രീയ അനീതിയ്ക്കെതിരെ ശക്തമായ സ്വാധീനം ചെലുത്താനും അഹിംസ പ്രോത്സാഹിപ്പിക്കുന്നതിലൂട്ടെ സ്ട്രമാധാനം നിലനിർത്താനും ഗാന്ധിമാർഗ്ഗത്തിന്റ് സ്റ്റെപ്പിച്ചതായും പ്രമേയം ചൂണ്ടിക്കാട്ടി ഇന്തോ അമേരിക്ക്ൻ കോൺഗ്ര്സിന്റെ രാജാകൃഷ്ണ മൂർത്തി കോൺഗ്രീസ് ഇന്ത്യാ കോക്കസ് പ്രതിനിധികളായ ബ്രാഡ് ഷെർമാൻ ജോർജ് ഹോൾഡിംഗ് എന്നിവരാണ് പ്രമേയം അവതരിപ്പിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന ഇന്ത്യൻ വിദേശ ഇന്ത്യൻ ഗവേഷകരുടേയും വിദ്യാഭ്യാസ വിദഗ്ധരുടേയും ആഗോള വെർചൽ ഉച്ചകോടിയാണ് വൈഭവ്

ആഗോള വികസനത്തിനായി രാജ്യത്തെ വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക വിദ്യ അടിത്തറ മെച്ചപ്പെടുത്തുക ഇതിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളേയും പ്രതിഭകളേയും ഒരൊറ്റ വേദികളിൽ കൊണ്ടു വരിക എന്നതാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം

ഒരു മാസം നീണ്ട് നിൽക്കുന്ന വെബിനാറിൽ വിവിധ തലങ്ങളിലെ വിദഗ്ധർ പങ്കെടുക്കും

ന്യൂസ് ഡെസ്ക് ആകാശ്വാണി

കർഷകരുടെ താല്പര്യത്തിന് എതിരായി ഒന്നും തന്നെ മോദി സർക്കാർ ചെയ്യില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സർക്കാരുമായി ചർച്ച നടത്തണമെന്ന് എല്ലാ കർഷക സംഘടനകളോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു സംശയങ്ങളും തെറ്റിദ്ധാരണകളും പരിഹരിക്കുന്നതിന് കർഷക സംഘടനകളുമായി ചർച്ചകൾ ആരംഭിച്ചതായും ശ്രീ സിംഗ് വൃക്തമാക്കി

നേരത്തെ കനത്ത മഞ്ഞ് വീഴ്ച കാരണം വർഷത്തിൽ ആറ് മാസം താഴ്വരയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടിരുന്നു ടണൽ വരുന്നതോടെ ഇതിന് ശാശ്വത പരിഹാരമാകും

ആൾക്കൂട്ട സമരങ്ങൾ ഒഴിവാക്കാൻ സർവ്വകക്ഷി യോഗത്തിൽ തീരുമാന്റിച്ചതിന് പിന്നാലെയാണ് ഉത്തരവ്

ഓഫീസിൽ പോകാനും വാഹനം കാത്തുനിൽക്കുന്നതിനും തടസ്സമുണ്ടാകില്ല കടകൾ തുറക്കാമെങ്കിലും സാമൂഹിക അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും വേണം

ഡിസംബറിന് മുമ്പ് അവസരങ്ങൾ ഒരുക്കും കൊവിഡിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിൽ മറ്റ് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ പാടില്ലെന്ന നിലയിലാണ് സർക്കാർ പോകുന്നത്

കൊവിഡ് സൃഷ്ടിച്ച തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പദ്ധതി പ്രഖ്യാപിച്ചതായും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു

സംസ്ഥാനത്തെ ഒന്നാം ഘട്ട ക്ക് ക്ക് രൂത്രൂഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ സമർപ്പണത്തിനുള്ള ആദ്യി ദിനത്തിൽ ഇന്നലെ മൂന്ന് പത്രികകാണ് സമർപ്പിച്ചത്

ഔറംഗബാദിലേയും വസീർഗ്ഗുഞ്ച് മണ്ഡലത്തിലേയും വരണാധികാരികൾക്ക് മൂമ്പൂർകെയാണ് രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇന്നല്ലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്

അതേസമയം കോവിഡ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ബീഹാർ സന്ദർശനത്തിനൊടുവിൽ പാട്നയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബീഹാറിൽ തിരക്ക് ഒഴിവാക്കുന്നതിനായി പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം ഒരു ലക്ഷത്തി ആറായിരം ആയി വർദ്ധിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു

കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി നോഡൽ മെഡിക്കൽ ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ശ്രീ

ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരോടും ഇലക്ടറൽ ഓഫീസർമാരോടും കോവിഡ് പ്രതിരോധ നടപടികൾ നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വോട്ടർമാരെ ബോധവല്കരി ക്കാനുള്ള സ്വീപ് പരിപാടിയിലൂടെ കോവിഡ് പ്രതിരോധ നിർദ്ദേശ ങ്ങളും നൽകും സമാധാനവും സുരക്ഷിതവും സുഗമവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്നും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വർഗ്ഗീയതയും കലാപവും പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും ്യശീ